എന്നിവർ വിജയിച്ചതായി ് റിപ്പോർട്ട്

എൻ ഡി എ യ്ക്ക് സാധ്യത

പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്സ് മുന്നേറ്റം തുടരുന്നു

ഡി എഫ് തിരഞ്ഞെടുപ്പ് ഫലസൂചനകളിൽ എൽ ഡി എഫിന് പ്രകടമായ മേൽക്കൈ

എഫും മൂന്നിടത്ത് എൻ

മന്ത്രിമാരായ ടി പി രാമകൃഷ്ണൻ എം എം മണി എന്നിവർ വിജയിച്ചതായി റിപ്പോർട്ട് ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മട്ടന്നൂരിൽ മന്ത്രി കെ

മന്ത്രി ജെ മെഴ്സിക്കുട്ടിയമ്മ മുൻമന്ത്രി ക്ട്രിട്ടീ ജ്ജലീൽ കേരളാ കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ ്രമാണ്ടി എന്നിവർ പിന്നിലാണ് പാലക്കാട് ഇ ശ്രീധരൻ ന്ദ്രേമൃത്ത് കുമ്മനം രാജശേഖരൻ തൃശൂരിൽ സുരേഷ് ഗ്യോപ്പി എന്നിവരാണ് ലീഡ് ചെയ്യുന്ന എൻ

എ സ്ഥാനാർത്തികൾ

കന്യാകുമാരി ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സും തിരുപ്പതിയിൽ വൈ എസ് ആർ കോൺഗ്രസ്സും ബെൽഗാമിൽ ബി ജെ പി യും മുന്നേറുന്നു

തലസ്ഥാന നഗരവികസനം വിഴിഞ്ഞം തുറമുഖം ദേശീയപാത വികസനം അടിസ്ഥാനസൌകര്യ വികസനം തുടങ്ങിയവയ്ക്കൊപ്പം വിവാദങ്ങളും സജീവമായി തിരഞ്ഞെടുപ്പ് ചർച്ചയ്ക്ക് വിധേയമായിരുന്നു

തിരുവന്തപുരം വോയിസ് ഗോപകുമാർ ഇത്തവണയും തിരുവനന്തപുരം ജില്ലയിലെ ഭൂരിഭാഗ മണ്ഡലങ്ങളും എൽ ഡി എഫിനൊപ്പം നിൽക്കുമെന്ന സൂചനകളാണ് ലീഡ് നില പരിശോധിക്കുമ്പോൾ ലഭിക്കുന്നത്

ശക്തമായ ത്രികോണമത്സരം നടക്കുന്ന നേമം മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ തന്റെ ലീഡ് ഇപ്പോഴും നില്ലനിർത്തുകയാണ്

വർക്കല ആറ്റിങ്ങൽ ചിറയിൻകീഴ് നെടുമങ്ങൂട് വാമനപുരം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് അരുവിക്കര പാറശ്ശാല കാട്ടാക്കട നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിൽ എൽ ഡി എഫാണ് മുന്നിൽ നിൽക്കുന്നത്

ഒരു ഘട്ടത്തിൽ കോൺഗ്രസ്സിന്റെ കെ എസ് ശബരീനാഥൻ ലീഡ് ചെയ്തിടത്ത് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജി സ്റ്റീഫൻ നേരിയ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്

എൻ ഡി എ സ്ഥാനാർത്ഥി പി കെ കൃഷ്ണദാസ് മൂന്നാം സ്ഥാനത്താണ്

ഡി എഫും മൂന്നിടത്ത് യു ഡി എഫും മുന്നിട്ട് നിൽക്കുന്നു

ഡി

കുണ്ടറ ചവറ കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിൽ യു

കൃഫും മറ്റിടങ്ങളിൽ എൽ

ഡി എഫ് ഡ്യൂക്ക്ത്മായ ലീഡ് നിലനിർത്തുകയാണ്

എഫും ഒരു സീറ്റിൽ യു

എഫുമാണ് വിജയിച്ചത്

ജില്ലയിൽ ആകെയുള്ള ഒൻപത് മണ്ഡലങ്ങളിലും മിക്കയിടത്തും എൽ ഡി

മൂന്നിടത്ത് എൽ

എഫും രണ്ടിടത്ത് യു

തൊടുപുഴയിൽ യു ഡി എഫിലെ പി ജെ ജോസഫും പീരുമേട് യു ഡി

ഉടുമ്പൻചോലയിൽ മന്ത്രി എം

എഫും ആറിടത്ത് എൽ

കളമശ്ശേരിയിൽ പി രാജീവും തൃപ്പുണ്ണിത്തുറയിൽ നിലവിൽ കെ ബാബുവുമാണ് മുന്നേറൂന്ന്ത്

ഡി

കൊച്ചി നഗരവികസനം കുടിപ്പെള്ള പ്രശ്നം മാലിന്യപ്രശ്നം പാലാരിവട്ടം പാലം കൊച്ചി ്രമെട്രോ തുടങ്ങിയവയാണ് എറണാകുളം ജില്ലയിൽ തിർക്ക്ത്തുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യ ചർച്ചാ വിഷയമായ്ത്

കേരളാ കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രവർത്തനം കോവിഡ് പ്രതിസന്ധി തുടങ്ങിയവയൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് സജീവ ചർച്ചാ വിഷയമായിരുന്നു

എഫും ഒരിടത്ത് എൻ

എ യും തൃശൂരിൽ സുരേഷ് ഗോപി മുന്നിലാണ് ഇവിടെ പത്മജ വേണുഗോപാൽ മൂന്നാം സ്ഥാനത്താണ്

എഫും ഒരിടത്ത് യു

എഫുമാണ് വിജയിച്ചത്

എഫും നാലിടത്ത് എൽ

എഫും മുന്നേറുന്നു തവനൂരിൽ കെ

ജലീൽ പിന്നിലാണ് കുഞ്ഞാലിക്കുട്ടി വേങ്ങരയും മുന്നിലാണ്

എഫും പന്ത്രണ്ടിടത്ത് യു

എഫുമാണ് വിജയിച്ചത്

ഡി എ സീറ്റുറപ്പിക്കുള് ്ഷിധം പാലക്കാട് മണ്ഡലത്തിൽ ലീഡ് നിലനിർത്തുകയാണ് സ്ഥർക്കാരിന്റെ വികസന നേട്ടങ്ങളും കേന്ദ്ര സർക്കാരിന്റെ അവഗണനയുമാണ് ജില്ലയിൽ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായത്

എഫും രണ്ടിടത്ത് യു

പേരാമ്പ്രയിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ വിജയിച്ചതായി റിപ്പോർട്ടുണ്ട് ബാലുശ്ശേരിയിൽ സിപിഎമ്മിന്റെ സച്ചിൻ ദേവ് മുന്നിലാണ്

ടൂറിസം മലയോര മേഖലകളിലെ വികസനം കെ റെയിൽ ചുരം ബദൽ റോഡ് അടിസ്ഥാന സൌകര്യ വികസനം തുടങ്ങിയവയാണ് കോഴിക്കോട് ജില്ലയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യ ചർച്ചാ വിഷയമായത് വയനാട് വയനാട് ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടിടത്ത് യു

എഫും ഒരിടത്ത് എൽ

എഫുമാണ്

ബത്തേരിയിൽ ഐ സി ബാലകൃഷ്ണനും കൽപ്പറ്റയിൽ ടി

എഫും ഒരു സീറ്റിൽ യു ഡി

ഡി

്പരിയാരം മെഡിക്കൽ കോളേജ് രാഷ്ട്രീയ കൊലപാതക്ങ്ങൾ പൊതു വികസന പ്രശ്നങ്ങൾ തുടങ്ങി അരങ്ങു തകർത്ത തെരഞ്ഞെടുപ്പ് ചർച്ചകളാണ് കണ്ണൂരിൽ നടന്നത് തെരഞ്ഞെടുപ്പ് ഫലസൂചനകളുമായി കണ്ണൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി കെ

ശശിധരൻ

എഫും രണ്ടിടത്ത് എൽ

ബിജെപി അദ്ധ്യക്ഷൻ കെ

ഉദുമയിൽ കോൺഗ്രസിന്റെ ബാലകൃഷ്ണൻ പെരിയ മുന്നിലാണ് കാഞ്ഞങ്ങാട് മന്ത്രി ഇ

മജൂലിയിൽ മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാൾ മുന്നിലാണ്

അണ്ണാ ഡി എം കെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എടപ്പാടി കെ പളനിസാമി മുന്നിലാണ്

എന്നാൽ നന്ദി ഗ്രാമിൽ മുഖ്യമന്ത്രി മമത ബാനർജി പിന്നിലാണ് സുവേന്ദു അധികാരിയാണ് ഇവിടെ മുന്നിൽ കോൺഗ്രസ് ഇടതു സഖ്യത്തിന്ന് കാര്യമായ മുന്നേറ്റമുണ്ടാക്കാനായില്ല